ജമ്മുകാശ്മീരിലെ കുപ്പ്വാര ജില്ലയിൽ നുഴഞ്ഞു കയറിയ മൂന്ന് ഭീകരരെ സൈന്യും വധിച്ചു

ജെ പി പ്രസിഡന്റ് അമിത്ഷാ കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി ത്രിവേന്ദ്രസിംഗ് റാവത്ത് വാജ്പേയിയുടെ കൂടുംബാംഗങ്ങൾ സന്യാസിമാർ മതനേതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും

ജെ പി നേതാവ് ഭൂപേന്ദ്രസിംഗ് യാദവ് മാധ്യമങ്ങളെ അറിയിച്ചു

കൂടാതെ സംസ്ഥാനതല സ്ഥാനങ്ങളിലും ജില്ലാ ആസ്ഥാനങ്ങളിലും പഞ്ചായത്ത് തലത്തിലും പ്രാർത്ഥനാ യോഗം നടക്കും

ഇൻഷുറൻസ് പരിരക്ഷ ഉള്ളവർക്ക് ധനസഹായം നൽകാൻ പ്രത്യേക കൃാമ്പുകൾ നടത്താനും പ്രധാനമന്ത്രി ഇൻഷുറൻസ് കമ്പനികൾക്ക് നിർദ്ദേശം നൽകി ഫസൽ ബീമാ യോജനയിൽ അംഗങ്ങളായ കർഷകർക്കും അടിയന്തരസഹായം നൽകാനും തീരുമാനിച്ചിട്ടുണ്ട് വിള നശിച്ച കർഷകർക്ക് വീണ്ടും കൃഷിയിറക്കാൻ ഏകീകൃതകൃഷി വികസന പദ്ധതികൾക്ക് കേന്ദ്രഗവൺമെന്റ് സഹായം നൽകും വീടുകൾ തകർന്നവർക്ക് പ്രധാനമന്ത്രി ആവാസ് യോജനയിൽപെടുത്തി പുതിയ വീടുകളും നിർമ്മിച്ചു നൽകുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു

ദുരിതാശ്വാസ പ്രവർത്തനത്തിലൂടെയും ധനസഹായത്തിലൂടെയും കേരളത്തിന് സംസ്ഥാനങ്ങൾ മറ്റൂ തുണയാകുന്നുണ്ട് വിശദാംശങ്ങളുമായി കൃഷ്ണ

അഞ്ച് കോടി രൂപയുടെ സാമ്പത്തിക് സഹായവും ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക് പ്രഖ്യാപ്പിച്ചിട്ടുണ്ട്

ആംആദ്മി പാർട്ടി എം എൽ എ മാരും എം

മാരും ഒരു മാസത്തെ ശമ്പളം കേരളത്തിന് നല്കുമെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ട്വീറ്റ് ചെയ്തു

മരണമടഞ്ഞവരുടെ കൂടുംബാംഗങ്ങളോടും ഇന്ത്യൻ ജനതയോടും സൌദ്യ അറേബ്യൻ ഗവൺമെന്റിന്റെ അനുശോചനം അറിയിക്കുന്നുവെന്ന് സൌദി പ്രസ് ഏജൻസി വ്യക്തമാക്കി

മഴക്കെടുതിയിൽനിന്ന് സംസ്ഥാനം പൂർവസ്ഥിതിയിലാകുന്നതൂവരെ ജാഗ്രത തുടരും

കേന്ദ്രഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും ജനങ്ങളുടെ ഭാഗത്തുനിന്നും നല്ല സഹകരണമുണ്ടായി ഈ ഒരുമയാണ് മഹാദുരന്തം നേരിടാൻ കരുത്തായതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു

ഇന്നലെ നടന്ന കമ്മറ്റിയുടെ മൂന്നാമത്തെ മീറ്റിംഗിലാണ് ഇക്കാര്യം തീരുമാനിച്ചത് കേരളത്തിലെ പ്രളയബാധിത പ്രദേശങ്ങളിലെ രക്ഷാപ്രവർത്തനങ്ങൾ കമ്മിറ്റി വിലയിരുത്തി വ്യോമ നാവികസേന ഒ

ജി സി എന്നിവയുടെ അഞ്ച് അധിക ഹെലികോപ്ടറുകൾ സർവ്വീസ് നടത്താൻ ക്യാബിനെറ്റ് സെക്രട്ടറി പി

സിൻഹ നിർദ്ദേശിച്ചു

നാളെ കേരളത്തിൽ മഴ ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് കാലാവസ്ഥ നിരീക്ഷണകേന്ദ്രം അഡീഷണൽ ഡയറക്ടർ ജനറൽ മൃത്യുഞ്ജയ് മഹോപത്ര പറഞ്ഞു ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം നിലനിൽക്കുന്നുവെങ്കിലും കേരളത്തെ ഇത് ബാധിക്കില്ല എന്ന് ഭൌമശാസ്ത്ര വകുപ്പ് സെക്രട്ടറി എം

നിരവധി പേർക്ക് പരിക്കേറ്റു മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് അഞ്ച് ലക്ഷംരൂപ നഷ്ടപരിഹാരം നൽകുമെന്ന് കർണാടക ഉപമുഖ്യമന്ത്രി പരമേശ്വർ ട്വിറ്ററിൽ കുറിച്ചു കഴിഞ്ഞ മൂന്ന് ദിവസത്തെ മഴമൂലമുണ്ടായ നാശനഷ്ടങ്ങൾ കർണാടക മുഖ്യമന്ത്രി എച്ച്

കുമാരസ്വാമി നേരത്തെ വ്യോമ നിരീക്ഷണം നടത്തിയിരുന്നു കൊടക് ജില്ലയിൽ ഗവൺമെന്റ് രണ്ടരലക്ഷം ലിറ്റർ കുടിവെള്ളം ലഭൃമാക്കിയതായും വൈദ്യുതി ബന്ധം പുനസ്ഥാപിക്കാൻ നടപടികൾ സ്വീകരിച്ചതായും ശ്രീ കുമാരസ്വാമി മാധൃമപ്രവർത്തകരോട് പറഞ്ഞു ദുരിതം നേരിട്ട ജില്ലകളിൽ ദൂരന്തനിവാരണ സേന അഗ്നിശമന സേന മറ്റ് സൈനിക അംഗങ്ങൾ എന്നിവരെ നിയോഗിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു

ജി പി എസ്

വൈദ് ആണ് ടിറ്ററിലൂടെ ഇക്കാര്യം അറിയിച്ചത് നുഴഞ്ഞ് കയറാൻ ശ്രമിച്ച തീവ്രവാദികളെ സൈന്യം തടഞ്ഞ് നിർത്തി കീഴടങ്ങാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഉണ്ടായ ഏറ്റുമുട്ടലിലാണ് മൂന്ന് ഭീകരർ കൊല്ലപ്പെട്ടത്

പ്രദേശത്തെ സൈന്യത്തിന്റെ പെട്രോളിംഗിനിടെയാണ് അപകടമുണ്ടായത്

പദ്ധതിയെ സംബന്ധിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനായി ബോധവൽക്കരണ പരിപാടികൾ വിവിധ സ്ഥലങ്ങളിൽ ക്രമീകരിച്ചിട്ടുള്ളതായും റിപ്പോർട്ടിൽ പറയുന്നു

ഇന്നലെ കളി അവസാനിക്കുമ്പോൾ യുവതാരം റിഷഫ് പന്താണ് ക്രീസിൽ

രണ്ടാം പകുതിയിൽ സുനിത മുണ്ടയുടെ സ്ട്രൈക്കുകളാണ് ഇന്ത്യയെ കിരീടമണിയിച്ചത്

ചാമ്പ്യൻഷിപ്പിലെ രണ്ടാം എഡിഷനാണ് ഇത്

ലണ്ടനിൽ ചാരിങ് ക്രോസ് പോലീസ് സ്റ്റേഷനിലാണ് ജാബിർ പിടിയിലായത്

എ ഇ തുടങ്ങി നിരവധി രാജ്യങ്ങളിൽ ദാവൂദിന്റെ നിക്ഷേപങ്ങളുടെ മേൽനോട്ടം ജാബിറിനായിരുന്നു ദാവുദിന്റെ നിക്ഷേപങ്ങളെക്കുറിച്ചും കൂടുംബങ്ങളെക്കുറിച്ചും ജാബിറിനെ ചോദ്യം ചെയ്യും ജാബിറിനെ അറസ്റ്റ് ചെയ്യണമെന്ന് നേരത്തെ ഇന്ത്യ ആവശ്യപ്പെട്ടിരുന്നു കള്ളക്കടത്ത് പിടിച്ചുപറി തുടങ്ങി മറ്റ് ക്രിമിനൽ കുറ്റകൃത്യങ്ങളിൽ പ്രതിയാണ് മോത്തി

മിഡിൽ ഈസ്റ്റ് യു

യൂറോപ്പ് ആഫ്രിക്ക പാക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ ദാവൂദിന്റെ നിക്ഷേപങ്ങളിൽ പങ്കാളി കൂടിയാണ് ജാബിർ